പി രാഹുൽ ഗാന്ധി മരട് ഫ്ളാറ്റുകൾ ഒഴിയാൻ കൂടുതൽ സമയം അനുവദിക്ക ണമെന്ന ഹർജി സുപ്രീംകോടതി വീണ്ടും തള്ളി

എസ്

സി സർവീസുകൾ തടസ്സപ്പെട്ടു

ും റിസർവ് ബാങ്ക് റിപ്പോ പലിശ നിരക്ക് കാൽശതമാനം കുറച്ചു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസം ദക്ഷിണാഫ്രിക്ക പൊരുതുന്നു വയനാട്ടിലെ രാത്രിയാത്രാ നിരോധന വിഷയം സുപ്രീംകോട തിയിൽ കൈകാര്യം ചെയ്യാൻ രാജ്യത്തെ ഏറ്റവും പ്രഗൽഭനായ അഭിഭാഷകനെ തന്നെ നിയോഗിക്കുമെന്ന് രാഹുൽ ഗാന്ധി എം പി സുൽത്താൻ ബത്തേരിയിൽ പറഞ്ഞു അനിശ്ചിതകാല നിരാഹരം നടത്തുന്ന യുവജന സംഘടനാപ്രതിനിധികളെ സന്ദർശിച്ച് സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ വൃത്യാസത്തിന് ഉപരി യായി എല്ലാവരും ഒന്നായി ചേർന്നുപോകുന്ന ഈ വിഷയത്തിൽ ബുദ്ധിപരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ അറി യിച്ചു വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും അതോടൊപ്പം ഗതാഗത സൌകര്യം തടസ്സപ്പെടുത്താതെയും പ്രശ്നം പരിഹരി ക്കാൻ കഴിയണം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിവാക്ക പ്പെടേണ്ടതാണെന്നും വയനാട്ടിലെ ജനങ്ങളോട് അനുഭാവപൂർണ മായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി കോഴിക്കോട്ടെത്തിയ രാഹുൽ രാവിലെയാണ് വയനാട്ടിലെത്തിയത് നിരാഹാരത്തെ തുടർന്ന് ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെയും അദ്ദേഹം സന്ദർശിച്ചു മരട് ഫ്ളാറ്റുകൾ ഒഴിയാൻ കൂടുതൽ സമയം അനുവദിക്കണ മെന്ന ഉടമകളുടെ റിട്ട് ഹർജി സുപ്രീംകോടതി വീണ്ടും തള്ളി ഫ്ളാറ്റുകളിൽ നിന്ന് താമസം മാറ്റാൻ ഒരാഴ്ചകൂടി സമയം ആവ ശൃപ്പെട്ടാണ് ഏതാനും ഉടമകൾ സുപ്രീംകോടതിയെ സമീപിച്ചത്

അതിനിടെ മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഏറെക്കുറെ എല്ലാ താമസക്കാരും ഒഴിവായി കഴിഞ്ഞു ഉടമസ്ഥർ ആരാണെന്ന് വ്യക്ത മാകാത്ത ഏതാനും ഫ്ളാറ്റുകൾ മാത്രമാണ് പൂട്ടിക്കിടക്കുന്നത് ഇവിടങ്ങളിൽ താമസക്കാർ ആരുമില്ല ഒഴിഞ്ഞ താമസക്കാരുടെ വീട്ടുസാധനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് കെ എസ്

സി യിൽ പ്രതിസന്ധി തുടരുന്നു

ഓർഡിനറി സർവീസുകൾ ഉൾപ്പെടെ നിർത്തലാക്കിയതോടെ ഗ്രാമങ്ങളിലടക്കം യാത്രാക്ലേശം രൂക്ഷമാ ണ്

എസ്

സി പിരിച്ചു വിട്ടത് പ്രതിസന്ധി ചർച്ചചെയ്യാൻ ഗതാഗതമന്ത്രി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്

സി എം

പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ പങ്ക് അന്വേഷിക്കുന്നതിന് വിജിലൻസ് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി തേടി പൊതുപ്രവർത്ത കർക്കെതിരെ അന്വേഷണത്തിന് അനുമതി വാങ്ങണമെന്ന വ്യവ സ്ഥ പ്രകാരമാണ് വിജിലൻസിന്റെ നടപടി മന്ത്രിയെന്ന നിലയിലും റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയിലും നിർമ്മാണത്തിൽ ഇബ്രാഹിംകുഞ്ഞ് നടത്തിയ ഇട പെടലുകളാണ് അന്വേഷണത്തിന് വിധേയമാക്കുന്നത് ചട്ടം ലംഘിച്ച് കരാറുകാരന് വായ്പ നൽകാൻ നിർദേശിച്ചത് മന്ത്രിയാ യിരുന്ന ഇബ്രാഹിംകുഞ്ഞാണ് എന്ന് പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി യിരുന്നു

ബിഹാറിലെ സദർ പൊലീസ് സ്റ്റേഷനിലാണ് പ്രഥമ വിവരറിപ്പോർട്ട് ഫയൽചെയ്തത്

എ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കരിതേച്ച് കാണിച്ചെന്നും ആരോപിച്ച് ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കേസ്

സച്ചിദാനന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ രാമചന്ദ്രഗുഹ മണിരത്നം അപർണസെൻ ശ്യാം ബെനഗൽ സൌമിത്രോ ചാറ്റർജി തുടങ്ങിയവരും കേസിൽ പ്രതികളാണ് ആൾക്കൂട്ട ആക്ര മണങ്ങൾ തടയാൻ കടുത്ത നടപടി ആവശ്യപ്പെട്ടാണ് കത്ത് പ്രധാനമന്ത്രിക്കയച്ചത് പ്രവാസികളിൽ നിന്ന് കേരളത്തിൽ കൂടുതൽ നിക്ഷേപം സമാ ഹരിക്കാൻ ഇന്ന് ദുബായിയിൽ നീം നിക്ഷേപക സംഗമം സംഘ ടിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിൽ പങ്കെടു ക്കാൻ ഇന്നലെ ദുബായിയിലെത്തി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 എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ രാജ്യവ്യാ പകമായി സച്ഛ് പാനി അഭിയാന് ഗവൺമെന്റ് പദ്ധതി തയ്യാറാ ക്കുമെന്ന് കേന്ദ്രമന്ത്രി രാം വിലാസ് പസ്വാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ കുടിവെള്ളത്തിന് ബി

എസ് മാനദണ്ഡമനുസരിച്ച് നിലവാരം ഉറപ്പാക്കണമെന്ന് നിർദേശം നൽകുമെന്നും ഇതിനായി സംസ്ഥാനങ്ങൾ തമ്മിൽ സമ വായം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രഭക്ഷ്യ മന്ത്രാല യത്തിന്റേതാണ് പദ്ധതി

ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ സർവീസിന് തുട ക്കമായി ഡൽഹി ലക്നൌ തേജസ് ട്രെയിൻ ഉത്തർപ്രദേശ് മുഖ്യ മന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌ ജംഗ്ഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്നത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷം നാളെ മുതൽ ഇത് പ്രതിദിന സർവീസായി മാറും

അതേസമയം റെയിൽവെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ലോക്കോ റണ്ണിങ് ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിങ് സ്റ്റാഫ് അസോസിയേഷൻ ഇന്ന് കരിദിനം ആച രിക്കുകയാണ് സവാളയുടെ കയറ്റുമതി നിരോധിച്ചതോടെ വിപണിയിൽ വില കുറഞ്ഞു വരു ന്ന തായി കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ രണ്ട് പൊലീസുകാർ കൊല്ലപ്പെട്ടു നിരോധിത സംഘടനയായ സി

ഐ മാവോയിസ്റ്റുകൾ സുരക്ഷാ ഭടന്മാർക്കുനേരെ പുലർച്ചെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഝാർഖണ്ഡ് എ

ജി പി അറിയിച്ചു

വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് റിപ്പോ

വർക്കല എസ്

മെഡിക്കൽ കോളജിനെതിരെ നിയമവശം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ

ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു വിദ്യാർത്ഥികളെ മാറ്റാൻ കോടതി പറഞ്ഞാൽ അനുസരിക്കേണ്ടിവരുമെന്നും ഗവൺമെന്റ് മെഡി ക്കൽ കോളജിലേക്ക് കുട്ടികളെ മാറ്റാൻ പറഞ്ഞാൽ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സ്വകാര്യ കോളേജുകളിലേക്ക് വിദ്യാർത്ഥി കളെ മാറ്റാൻ കഴിയുമോ എന്നത് പരിശോധിക്കണമെന്നും സ്വകാര്യ മെഡിക്കൽ കോളജിലെ സൌകര്യങ്ങൾ പരിശോധിക്കാൻ ഗവൺമെന്റിന് പരിമിതിയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി

ഹോർട്ടികോർപ്പിന്റെ വടകര സബ് സെന്റർ തോടന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി കാർഷികമേഖലയിൽ മൂല്യവർധിത ഉല്പ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും യുവാക്കളെ കാർഷികമേഖലയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നും മന്ത്രി നിർദേശിച്ചു

വനഭൂമി വന്യജീവി എന്നി വയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ പരാതികളിൽ അടിയ ന്തര പരിഹാരം കാണുന്നതിന് അദാലത്തിൽ നടപടികൾ സ്വീക രിക്കും തൃശൂരിൽ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച്ചയുണ്ടായെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്ന് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അറിയിച്ചു മലപ്പുറം തൃപ്പൻകോട് കൈമലേശ്വരി സ്വദേശി രഞ്ജി ത്താണ് എക്സൈസ് സ്പെഷ്യൽ സ്കാഡിന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം മരിച്ചത് കോഴിക്കോട് കൂടത്തായിൽ അടുത്തബന്ധുക്കളായ ആറുപേർ മരിച്ച സംഭവത്തിൽ ഫോറൻസിക് പരിശോധന ആരംഭിച്ചു മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ക്രൈബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായാണ് കല്ലറതുറന്ന് പരിശോധിക്കുന്നത് വിദ്യാഭ്യാസവകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന ടോംതോമസ് ഭാര്യ അന്നമ്മ മകൻ റോയി തോമസ് അന്നമ്മയുടെ സഹോദരൻ കൂടത്തായി മാത്യു ടോംതോമസിന്റെ സഹോദര പുത്രന്റെ ഭാര്യ സിലി രണ്ടരവയസ്സുകാരി മകൾ എന്നിവരുടെ മരണമാണ് അന്വേഷണ പരിധിയിൽ വരുന്നത് രാവിലെ സിലിയുടേയും മകളുടേയും കോടഞ്ചേരിയിലെ കല്ലറ പൊളിച്ച് സാമ്പിളുകൾ ശേഖരിച്ച ശേഷം കൂടത്തായിലെ കല്ലറകൾ പരിശോധിക്കുന്ന നടപടികളും ആരംഭിച്ചു സുപ്രീംകോടതി പറയുന്നത് മുഴുവൻ ശരിയാകണമെന്നില്ലെന്ന് മുൻഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു സുപ്രീംകോടതിയ്ക്ക് മുകളിൽ മറ്റൊരു കോടതി ഇല്ലാത്താതു കൊണ്ട് മാത്രമാണെന്ന് അവ ശരിയാകുന്നതെന്നും അദ്ദേഹം കുവൈറ്റിൽ പറഞ്ഞു ഈ വർഷത്തെ മയിൽപ്പീലി പുരസ്കാരത്തിന് പ്രശസ്ത കവി എസ് രമേശൻ നായർ ചലച്ചിത്ര നടി കെ

സി ലളിത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ കിയാൽ മാനേജിംഗ് ഡയരക്ടർ വി തുളസിദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു

കണ്ണൂരിൽ ഒരു കോടി രൂപയും മയക്കുമരുന്നുമായി മൂന്ന് പേർ പിടിയിലായി പാനൂരിൽ നിന്നാണ് തലശേരി കോഴിക്കോട് സ്വദേ ശികളെ വാഹന പരിശോധനക്കിടെ പൊലീസ് പിടികൂടിയത് ചുമട്ടുതൊഴിലാളി നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഐ

സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ

രാഘവൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു ജോലിയിൽ നിന്ന് വിരമിച്ച സ്കേറ്റേഡ് വിഭാഗംതൊഴിലാളികളുടെ ക്ഷേമനിധി യിൽ നിക്ഷേപിച്ച തുക ഉടൻ തിരിച്ചു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു

തൃശൂർ പൂങ്കുന്നം വെട്ടിയാട്ടിൽ വൈശാഖ് അഞ്ചേരി കുറിയച്ചിറ നെല്ലി ക്കൽ വൈശാഖ് എന്നിവരാണ് പിടിയിലായത്

ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ രാത്രി ഗ്രന്ഥ പൂജക്ക് തുടക്കമാകും